വ്യോമസേനയുടെ വീര്യള്ളത്ത് പ്രിശംസിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംങ് ഏത് പ്രീതിസന്ധിയും നേരിടാൻ സജ്ജരാവാനും ആഷ്ടാനും

എസ് ഇന്ത്യ ബിസിനസ്സ് കൌൺസിൽ സംഘടിപ്പിച്ച ഇന്ത്യ ഐഡിയാസ് വെർചൽ സമ്മിറ്റിനെ അഭിസംബോധന ചെയ്യുകയായി രുന്നു അദ്ദേഹം ഇന്തൃയുടെ സുതാരൃത്യിലും വിവിധ താല്പരൃ ങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ളൂ അ്വസരങ്ങളിലും ആഗോള തലത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളത്ട്

ശേഷിക്കുന്നവർക്ക് കൂടി ഇന്റർനെറ്റ് സൌകര്യ ങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമ്ത്തിലാണ് രാജ്യം

ഇന്ത്യ യിൽ ആരോഗ്യമേഖലയിൽ നിക്ഷേപിക്കാനുള്ള മികച്ച സമയമാണി തെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൌകരൃ വികസനം റോഡ് ഊർജ്ജം വ്യോമ മേഖല എന്നിവയിലും വൻ അവസരങ്ങൾ ഉണ്ട്

മോദി വൃക്തമാക്കി ബഹിരാകാശ മേഖലയിൽ മുമ്പെങ്ങും ഇല്ലാത്ത വളർച്ചയാണ് ഉള്ളത് ലോകത്തെ സാമ്പത്തിക വളർച്ച തിരിച്ചുപിടിക്കാൻ എന്തുവേണമെന്ന് ഇന്ത്യയ്ക്ക് വ്യക്തമാണ്

മഹാമാരിയെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ ഇന്ത്യ അമേരിക്ക സഹകരണം പ്രധാനമാണ് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ഇതിലും നല്ല അവസര മില്ലെന്ന് അദ്ദേഹം അമേരിക്കയിലെ നിക്ഷേപകരോട് പറഞ്ഞു പാവപ്പെട്ടവരും പാർശ്വവത്കരിക്കപ്പെട്ടവരുമാവണം വളർച്ചയുടെ പ്രധാന ഗുണഭോക്താക്കളെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി

മോദി വ്യക്തമാക്കി

എസ് വിദേശനയം അനുസരിച്ച് മുഖ്യസ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ള തെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ വിശ്വസി ക്കാനാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യൂയ്ക്കും ആഗോളതലത്തിലും ഇൻഡോ പസഫിക് മേഖലയിലും അമേരിക്കയുടെ മികച്ച പ്രതിരോധ പങ്കാളിയാണ് ഇന്ത്യയെന്നും അദ്ദേഷം പ്റഞ്ഞു

അമേരിക്ക ആതിഥ്യമരുളുന്ന അടുത്ത ജിംഗ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നുക പോംപിയോ അറിയിച്ചു

സമുദ്ര സുരക്ഷ തീവ്രവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ കോവിഡ് പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തന മികവിനെ അദ്ദേഹം അഭിനന്ദിച്ചു

ബാലക്കോട്ട് വ്യോമാക്രമണ രീതിയും കിഴക്കൻ ലദ്ദാഖിൽ പ്രതിരോധത്തിനായി വ്യോമസേന സ്വീകരിച്ച നടപടികളും ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ഒരു ഇന്ത്യൻ കമ്പനിക്കും ഒരു ബെൽജിയം കമ്പനിക്കുമാണ് കിറ്റ് നിർമ്മിക്കാൻ പുതുതായി അനുമതി നൽകിയത്

യാത്ര ചരിത്രമില്ലാത്ത പ്രദേശവാസികളായ ചിലർക്ക് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് തീരുമാനം

ആലുവ നഗരസഭ സമീപ പഞ്ചായത്തുകളായ ചെങ്ങമനാട് കരുമാലൂർ കടുങ്ങല്ലൂർ ആലങ്ങാട് ചൂർണ്ണിക്കര എടത്തല കീഴ്മാട് എന്നിവയാണ് ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിൽ രാവിലെ ഏഴു മണി മുതൽ ഒമ്പത് മണി വരെ മൊത്തവിതരണവും പത്ത് മുതൽ രണ്ട് വരെ ചില്ലറ പില്പനയും അനുവദിക്കും

കോവിഡ് സമ്പർക്കം മൂലം അടച്ചിട്ടിരുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളും അണുനശീകരണം നടത്തി ഇന്ന് മുതൽ പൂർണ്ണ തോതിൽ പ്രവർത്തനം പുനഃരാരംഭിക്കും മെഡിക്കൽ ആവശ്യങ്ങൾ ഒഴികെയുള്ള ഗതാഗതവും അനുവദിക്കില്ല

ദർഭംഗ പടിഞ്ഞാരൻ ചമ്പാരൻ സുപോൾ എന്നീ ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത് ഒമ്പത് പേർ ഇതുവരെ മരിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

കുൽഗാം ജില്ലയിലെ സീനിയർ പ്പൊലീസ് സൂപ്രണ്ട് ഗുർവിന്ദർ പാൽ സിങാണ് മരിച്ചത്

എ

എ

ഈ വർഷം മാർച്ച് ഒന്നിന് മുമ്പ് വിസാ കാലാവധി അവസാനിച്ചവരോ ഇക്കാലയളവിനുള്ളിൽ താമസം നിയമാനുസൃതമാക്കിയിട്ടില്ലാത്തവരോ ആയ വിദേശീയർക്കാണ് യു എ